ഓർഡിനൻസ് പുറപ്പെടുവിച്ചു കേന്ദ്രം കേരളത്തിന് ഫലപ്രദമായ സഹ്റായം നൽകുന്നി ല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലവർഷക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്രസംഘം കണ്ണൂർ എറണാകുളം ജില്ലകളിൽ സന്ദർശനം തുടരുന്നു കേന്ദ്ര മോട്ടോർവാഹന നിയമഭേദ്ദഗതിയുടെ അടിസ്ഥാന ത്തിൽ സംസ്ഥാനത്ത് വാഹന പ്രിശോധന പുനരാരംഭിച്ചു മുത്തൂറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി നിർദേശം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടിൽ ജാസ്മിൻഷാ അടക്കം നാലുപേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇലക്ട്രോണിക് സിഗരറ്റുകളുടെ നിർമാണവും വിതരണവും ഉപയോഗവും നിരോധിച്ച് കേന്ദ്രഗവൺമെന്റ് ഓർഡിനൻസ് പുറ പ്പെടുവിച്ചു ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇ സിഗററ്റ് നിരോധിക്കാൻ തീരുമാനിച്ചത് ഇവയുടെ ഇറക്കുമതിയും സംഭരണവും പരസ്യങ്ങളും കുറ്റകരമാക്കിയാണ് ഓർഡിനൻസ് വിജ്ഞാപനം ചെയ്തത് വൻ തുക പിഴയും തടവും ലഭിക്കാ വുന്ന കുറ്റമാണിത് നിരോധനം ലംഘിച്ചാൽ ആദൃതവണ ഒരു ലക്ഷം രൂപ പിഴയും ഒരു വർഷം തടവുമാണ് ലഭിക്കാവുന്ന ശിക്ഷ

ഇത്തരം സാധനങ്ങൾ ശേഖരിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യാനും കണ്ടു കെട്ടാനും ഓർഡിനൻസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഫലപ്രദമായ സഹായം നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പ്പാല് മുത്തോലി കവലയിൽ എൽഡിഎഫ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനത്തിന്റെ കാര്യത്തിൽ എൽഡിഎഫ് ഗവൺമെന്റ് വ്യക്തമായ നിലപാടെടുത്താണ് മുന്നോട്ട് പോകുന്നത് സാമൂഹ്യനീതിയിലധിഷ്ഠിത്പും സർവതല സ്പർശിയുമായ വികസനമാണ് ഗവൺമെന്റ് ന്നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു അഴിമൃതിയും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അഴിമതി ക്കാർക്കെതിരെ കർശ്ന നടപടി ഉണ്ടാകുമെന്നും പിണറായി വിജ യൻ വ്യക്തമാക്കി സംസ്ഥാനത്ത് കാലവർഷക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്രസാഘ്ം ക്ണ്ണൂർ എറണാകുളം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം തുടരുന്നു കണ്ണൂരിലെ കണിച്ചാർ ശാന്തിഗിരി പാൽചുരം നൊച്ചാട് തുടങ്ങിയ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു എറണാകുളത്തെ ആലുവ കുന്നുകര വയൽക്കര വേലിക്കര തുടങ്ങിയ പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു

പാലാരിവട്ടം പാലം നിർമ്മാണത്തിൽ കരാറുകാരന് തുക മുൻകൂറായി നൽകാൻ ഉത്തരവിട്ടത് മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞാണെന്ന് കേസിലെ മുഖ്യപ്രതി ടി ഒ സൂരജ് വെളിപ്പെടുത്തി ഇബ്രാഹിംകുഞ്ഞിന്റെ അറിവോടെയാണ് പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും പുറത്തുവന്നത് റ്റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ എം ഡി ആയിരുന്നു ഹനീഷ് ആണ് പണം നൽകാൻ ശുപാർശ ചെയ്തതെന്നും സൂര്ജ് പറഞ്ഞു കസ്റ്റഡി കാലാവധി അവസാനിച്ചതിന്റെ തുടർന്ന് കൊച്ചി വിജി ലൻസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടു വന്നപ്പോഴാണ് ടി ഒ സൂരജ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗ്തിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വാഹന പരിശ്വോധന് പുനരാരംഭിച്ചു നിയമലംഘ നങ്ങൾക്ക് ഉയർന്ന പിഴ നിശ്ചയിച്ചതിനെ തുടർന്ന് ഓണക്കാലത്ത് വാഹനപരിശോധനയും പിഴ്ച്ചുമത്തലും നിർത്തി വെച്ചിരുന്നു മുഖ്യ മന്ത്രിയുമായി മന്ത്രി എ

ശശീന്ദ്രൻ ചർച്ച നടത്തിയതിന്റെ അടി സ്ഥാനത്തിലാണ് പ്രിശോധന വീണ്ടും ആരംഭിച്ചത് എന്നാൽ നിയ മലംഘനങ്ങൾക്ക് ഉയർന്ന പിഴത്തുക ഈടാക്കില്ല

പിഴയുടെ കാര്യ ത്തിൽ അന്തിമതീരുമാനമെടുക്കാൻ ശനിയാഴ്ച്ച മുഖ്യമന്ത്രി ഉന്നത തലയോഗം വിളിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ മോട്ടോർവാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന ശക്തമാക്കി

ബോധവത്കരണത്തോടൊപ്പം നിയമ നടപടികളുമാണ് നിലവിൽ സ്വീകരിക്കുന്നത് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചുനീക്കാൻ സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി നാളെ അവസാനിക്കും ഫ്ളാറ്റുകൾ പൊളിക്കുന്ന കാര്യത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഇന്ന് ഡൽഹിയിലേക്ക് പോകും ഫ്ളാറ്റുകൾ പൊളിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടേക്കുമെന്ന് സൂചനയുണ്ട് മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഏത് തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഞായറാഴ്ച ഹോസ്റ്റണിലെ ഹൌഡി മോദി ചൂടങ്ങിൽ സുപ്രധാ നമായ ചില പ്രഖ്യാപനങ്ങളുണ്ടാവുമെന്ന് അമ്മേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു

ഇന്തൃയുമായും നര്യേന്ദ്രമോദിയുമായും പുലർത്തിപോ രുന്ന സവിശേഷ സൌഹൃദത്തിന്റെ ഭാഗമായാണ് ചടങ്ങിൽ പങ്കെ ടുക്കുന്നതും പ്രഖ്യാപനം നട്ത്തൂന്നതെന്നും വൈറ്റ്ഹൌസ് കേന്ദ്ര ങ്ങൾ അറിയിച്ചു രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗ് ഇന്ത്യ തദ്ദേശീയമായി വിക സിപ്പിച്ച പോർവിമാന്മായ തേജസിൽ പറന്നു രാവിലെ ബംഗളുരു വിലെ എച്ച്എൽ വിമാനത്താവളത്തിൽ നിന്നാണ് മന്ത്രി തേജ സിൽ കയറിയ്ത് അൽപസമയം വിമാനത്തിന്റെ നിയന്ത്രണവും അദ്ദേഹം ഏറ്റെടുത്തായി വ്യോമസേനാകേന്ദ്രങ്ങൾ അറിയിച്ചു ഇതോടെ രാജ്നാഥ്സിംഗ് തേജസ് പോർവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാജ്യരക്ഷാ മന്ത്രിയായി ഡിആർഡിഒ വികസിപ്പിച്ച് എച്ച്എഎൽ നിർമിച്ച പോർവിമാന മാണ് തേജസ്

സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയിക്കെതിരെ പീഡനപരാതി നൽകിയ യുവതിക്കെതിരായ വഞ്ചനാകേസ് നടപടി ഡൽഹി പട്യാല ഹൌസ് കോടതി അവസാനിപ്പിച്ചു

ലാൻഡർ സ്ഥിതിചെയ്യുന്ന മേഖലയിലെ ചാന്ദ്രപകൽ നാളെ പൂർത്തി യാകുന്നതിനാൽ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോളാർ പാനലുകൾക്ക് സൌരോർജ്ജം ലഭിക്കില്ല ഇതോടെ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കും ലാൻഡറുമായി ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞൻ അവസാനവട്ട ശ്രമത്തിലാണ്

ജപ്പാൻ താരം ഒകുഹാരയെ എതിരില്ലാത്ത രണ്ടു സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറിയത്

സൈന നഹ്വാൾ പുറത്തായി പുരുഷ വിഭാഗത്തിൽ ബി സായ് പ്രണീത് പി കശ്യപ് എന്നിവർ ആദ്യ റൌണ്ടിൽ വിജയിച്ചു മുത്തൂറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക്ക്ത്തുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി നിർദേശം നൽകി സമരം ചെയ്യാനെന്നപോലെ ജോ്ലി ചെയ്യാനും എല്ലാ ജീവന ക്കാർക്കും അവകാശമുണ്ട് മധ്യ്സ്ഥ ചർച്ചകളിൽ മാനേജ്മെന്റിന്റെ പ്രാതിനിധൃം ഉറപ്പാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു മുത്തൂ റ്റിന്റെ പത്ത് ശാഖകളിലെ ജീവനക്കാരാണ് ജോലി ചെയ്യാൻ സംര ക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് കൂടുതൽ ശാഖകൾ പൊലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചേക്കു മെന്നാണ് റിപ്പോർട്ട് യുണ്ണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ജാസ്മിൻഷാ അടക്കം നാല് പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത് മലപ്പുറം മമ്പാട് മണൽ മാഫിയയിൽ നിന്ന് പണം വാങ്ങിയ രണ്ട് പൊലീസുകാർക്ക് സസ്പെൻഷൻ നിലമ്പൂർ എ ആർ ക്യാമ്പിലെ മനുപ്രസാദ് ഹരീഷ് എന്നിവരെയാണ് സസ്പെന്റ് ചെയ്തത്

എൻഡോസൾഫാൻ ദുരിത ബാധിതകർക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പു വരുത്തുന്നുണ്ടോയെന്ന വിഷയം പരിശോധിച്ച് അവശ്യ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യകമ്മീഷണൻ അംഗം എം വിജയലക്ഷ്മി കാസർകോഡ് പറഞ്ഞു പൊതുവിതരണം കൃത്യമായി നടപ്പിലാ ക്കുന്നതുണ്ടോയെന്ന് പരിശോധിക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങണ മെന്നും ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികാരികളെ അറിയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കോഴിക്കോട് എലത്തൂരിൽ ഓട്ടോ ഒര്ഡ്പർ ് രാജേഷിനെ കൈയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ എലത്തൂർ പോലീസ് കേസെടുത്തു രാജേഷിനെ പത്ത് പ്രേർ ചേർന്ന് കയ്യേറ്റം ചെയ് തെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ നല്കിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് കോഴിക്കോട് എലത്തൂർ എരഞ്ഞിക്കൽ പ്രദേശങ്ങളിൽ തുടർച്ച യായി നടന്ന മോഷണ കേസുക്ളിലെ പ്രതി പിടിയിലായി അന്ന ശ്ശേരി സ്വദേശി സി ക്കെ ഷൈജു ആണ് പിടിയിലായത് കാസർകോട്ട് ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന പുകയില ഉൽപ്പ ന്നങ്ങൾ ജിഎസ്ടി ഇന്റലിജൻസ് സ്കാഡ് പിടിച്ചെടുത്തു ബാംഗ്ലൂ രിൽ നിന്നും കണ്ണൂരിലേക്ക് അരി മുളക് തുടങ്ങിയ സാധനങ്ങൾ കയറ്റിപോക്ടുകയായിരുന്ന ലോറിയിൽ നിന്നാണ് പുകയില ഉൽപ്പ ന്നങ്ങൾ പിടിച്ചെടുത്തത് ആഭ്യന്തര വകുപ്പിന് കീഴിലെ കോഴിക്കോട് എറണാകുളം റീജി യണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബുകൾക്ക് അന്താരാഷ്ട്ര അംഗീകാരമായ എൻ

എൽ അക്ര ഡിറ്റേഷൻ ലഭിച്ചു ഫോറൻസിക് പരിശോധനാ രംഗത്ത് രാജ്യാന്തര മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം

പാലക്കാട് പത്തിരിപ്പാലയിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും വാഷും ചാരായം വാറ്റുന്ന ഉപകരണങ്ങളും പിടികൂടി